ഉപയോഗിക്കുന്നത് കേന്ദ്രസർക്കാർ നിരോധിച്ചു

പുരോഗമിക്കുന്നു

എല്ലിൽ ഇന്ന് കൊൽക്കത്ത പഞ്ചാബ് പോരാട്ടം

വിശദാംശങ്ങളുമായി കിരൺ ശങ്കർ

ന്യൂസ് ഡസ്ക് ആകാശവാണി

രോഗവ്യാപനം നിയന്ത്രണ വിധേയമാക്കാൻ വിവിധ ജില്ലകൾ നഗരങ്ങൾ പ്രാദേശികതലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം

മെഡിക്കൽ ആവശ്യങ്ങൾക്ക് മാത്രമേ ദ്രവൃ ഓക്സിജൻ ഉപയോഗിക്കാവൂ എന്ന കർശന നിർദ്ദേശവുമുണ്ട്

ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല സംസ്ഥാന ഗവൺമെന്റുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്ത് അയച്ചു

കോവിഡുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്രി വൃവസായങ്ങൾ നേരിട്ടുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹെൽപ്പ് ഡെസ്ക്കിന് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചു

ജില്ലാ മേൽനോട്ട അധികാരികൾ ശുപാർശ ചെയ്യുന്ന രോഗികളെ മാത്രമെ ഈ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കൂ എന്ന് ഐ ടി ബി പി ഡയറക്ടർ ജനറൽ സുർജിത് സിംഗ് ദേസ്വാൾ പറഞ്ഞു

ഡൽഹിയിൽ ഓക്സിജൻ സൌകര്യമുള്ള കിടക്കകളുടെ ലഭ്യത വർധിപ്പിച്ചിട്ടുണ്ടെന്നും ശ്രീ അരവിന്ദ് കേജരിവാൾ പറഞ്ഞു

നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ലോക്ഡൌൺ ഇന്ന് അവസാനിക്കാനിരിക്കെ ആണ് വീണ്ടും ഛത്തീസ്ഗഡ്ഢിൽ നീട്ടിയത്

എല്ലാ ജില്ലാ അതിർത്തികളും അടഞ്ഞു തന്നെ കിടക്കും

മെയ് രണ്ടിന് നടക്കുന്ന വോട്ടെണ്ണലിന് ശേഷം ആഹ്ളാദ പ്രകടനങ്ങൾ നിയന്ത്രിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ സമവായം തേടുകയെന്ന ലക്ഷ്യവും സർവകക്ഷി യോഗത്തിനുണ്ട് വരും ദിവസങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുളള നടപടികൾ സർവകക്ഷി യോഗത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന

ഇവർക്ക് കൂടുതൽ രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ അടുത്ത കാറ്റഗറിയിലേക്ക് മാറ്റി ചികിത്സിയ്ക്കണമെന്നും മാർഗ്ഗരേഖയിൽ ് പറയുന്നു രോഗതീവ്രതയനുസരിച്ച് നൽകേണ്ട മരുന്നിനെക്കുറിച്ചും അവയുടെ ഡോസേജ് സംബന്ധിച്ചും മാർഗ്ഗുരേഖ വ്യക്തമാക്കുന്നുണ്ട് റെംഡെസിവിർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഓക്സിജൻ ആവശ്യമുള്ള രോഗികൾക്ക് നൽകിയാൽ മതി

ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലകൾക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ അതുല്യ വ്യക്തിയായിരുന്നു സന്താനമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് ടിറ്റർ സന്ദേശത്തിൽ വൃക്തമാക്കി

ജയശങ്കർ അനുശോചന കയറ്റുമതി നിയന്ത്രണങ്ങളെക്കുറിച്ചും സാങ്കേതിക ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും ഒരു തലമുറയെ പഠിപ്പിച്ച വൃക്തി കൂടിയായിരുന്ന സന്താനമെന്ന് വിദേശകാര്യമന്ത്രി ടിറ്റർ സന്ദേശത്തിൽ വ്യക്തമാക്കി

ദ ഫാദർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആന്റണി ഹോപ്ക്കിൻസ് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു നൊമാഡ്ലാന്റിലെ ഫേൺ എന്ന കഥാപാത്രത്തെ അനശ്വരയാക്കിയ ഫ്രാൻസിസ് മെക്ഡോർമെന്റ് മികച്ച നടിയായി

മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ചിത്രത്തിനുള്ള പുരസ്കാരം അനദർ റൌണ്ട് എന്ന ഡാനിഷ് ചിത്രം നേടി സോൾ ആണ് മികച്ച അനിമേറ്റഡ് ചിത്രം ജൂദാസ് ആന്റ് ദ ബ്ലാക്ക് മെസ്സയ്യ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഡാനിയൽ് കലൂർ മികച്ച സഹനടനായും മിനാരി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് യുൻ യോ ചംഗ് മികച്ച സഹനടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു

അഹമ്മദാബാദിലെ നരേന്ദ്രമോദി അസ്റ്റേഡിയത്തിലാണ് മത്സരം

സ്വർണ്ണ വിലയിൽ മാറ്റമില്ല

ക്ലസ്റ്റർ തല രോഗവ്യാപനം നിയന്ത്രിക്കാനായി തമിഴ്നാട്ടിൽ ഇന്നലെ ജില്ലാതല അടച്ചുപൂട്ടൽ ഏർപ്പെടുത്തിയിരുന്നു